ആചരിക്കുന്നു

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി രാജ്യസഭൂ രാവിലെയും ലോക്സഭ ഉച്ചയ്ക്ക്ശേഷവും അഞ്ച് മണിക്കൂർ വ്വീതിമുള്ള ഷിഫ്റ്റുകളായാണ് സമ്മേളിക്കുന്നത്

ദൂരദർശൻ ആകാശവാണി ആകാശവാണി വെബ്സൈറ്റ് എന്നിവയിലൂടെ പരിപാടി തൽസമയം ശ്രോതാക്കളിലെത്തും

സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയ്ക്കായതും കോവിഡ് വാക്സിന്റെ വരവും വളർച്ചയ്ക്ക് കാരണമാകും

അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി മാറുമെന്നാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ വിലയിരുത്തൽ

ഡി

തിങ്കളാഴ്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പൊതുബജറ്റ് അവതരിപ്പിക്കും

ചികിത്സയിലുള്ളവരുടെ എണ്ണം തുടർച്ചയായി കുറയുകയാണ്

രാജ്യത്താദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച കേരളത്തിലാണ് കണക്കുകൾ പ്രകാരം നിലവിൽ ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

കോവിഡിനെ നേരിടുന്നതിൽ ബഹ്റിൻ പങ്കാളിയാകുന്നതിൽ ഇന്ത്യയ്ക്ക് അഭിമാനമുണ്ടെന്നും ഇരുരാജൃങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളെ ഇനിയും ശാക്തീകരിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ട്വീറ്റ് ചെയ്തു

ഇതോടൊപ്പം സൈനിക അർധസൈനിക വിഭാഗങ്ങൾ പൊലീസ് സിവിൽ ഡിഫെൻസ് ഹോംഗാർഡ് മുനിസിപ്പൽ ജീവനക്കാർ ദുരന്തനിവാരണ പ്രവർത്തകർ അഗ്നിശമന സേനാംഗങ്ങൾ ജയിൽ ജീവനക്കാർ തുടങ്ങിയ മുന്നണിപ്രവർത്തകർക്കും വാക്സിൻ നൽകാൻ ആരോഗൃമന്ത്രാലയം നിർദേശിച്ചു

കോവിഡ് സാഹചര്യത്തിൽ ലളിതമായ ചടങ്ങുകളോടെയാണ് രാജ്യത്ത് രക്തസാക്ഷിദിനം ആചരിക്കുന്നത്

ഗാന്ധിജിയുടെ ആദർശങ്ങളായ സമാധാനം അക്രമരാഹിതൃം വിനയം തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ ജനങ്ങൾ പിന്തുട്ട്രുണമെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു സത്യത്തിന്റേയും സ്നേഹത്തിന്റേയും പാത പിന്തുടരാനും രാഷ്ട്രപതി ആഫ്പാ്നം ചെയ്തു ഉപരാഷ്ട്രപതി എം

രക്തസാക്ഷിത്വ ദിന്ത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിജിക്ക് ശ്രദ്ധാഞ്ജല്ി അർപ്പിച്ചു

ഇൌ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്രൃത്തിനും ഓരോ ഇന്ത്യാക്കാരന്റെയും ക്ഷേമത്തിനും വേണ്ടി സ്വയം അർപ്പിച്ച മഹത്തുക്കളായ സ്ത്രീപുരുഷന്മാരുടെ വീരോചിത ത്യാഗങ്ങൾ നാം ഓർക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ വിമോചനമെന്ന ഗാന്ധിയൻ സ്വപ്നം സാക്ഷാത്ക്കരിക്കാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉൌർജ്ജം പകരട്ടെയെന്നും ഫെയ് മുഖ്യമന്ത്രി സ്ബുക്കിൽ കുറിച്ചു

സമാധാനത്തിന്റെയും നീതിയുടെയും ആഗോള പ്രതീകത്തിനെതിരായ നിന്ദ്യമായ നടപടിയാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണവും ഉത്തരവാദികൾക്കെതിരെ നടപടിയും വേണമെന്ന് വാഷിംഗ്ടൺ ഡി സിയിലെ ഇന്ത്യൻ എംബസി യു

വാർഷികാഘോഷങ്ങളോട്നുബന്ധിച്ച് തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും

ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമായി മുന്നോട്ടു കൊണ്ടുപോകാൻ പ്രതിജ്ഞാ ബദ്ധരാണെന്ന് ഇരുനേതാക്കളും അറിയിച്ചു